മുരളീധരൻ നാളെ പാലക്കാട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും രാവിലെ പട്ടാമ്പിയിൽ പി എം എ

തുടർന്ന് കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം ഭാരവാഹികളുമായി മന്ത്രി ചർച്ച നടത്തും